മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം നോർക്ക അധികൃതർ നേപ്പാളിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുന്നുണ്ട് പോസ്റ്റുമോർട്ടം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വൈകുന്നേരം വിമാനത്തിൽ ഡൽഹിയിലെത്തിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ ഡൽഹിയിൽ പറഞ്ഞു രുര നേപ്പാളിൽ എട്ട് മലയാളികൾ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ എല്ലാ സൌകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയതായി വിദേശകാര്യ സഹമന്ത്രി വി

പോസ്റ്റ്മോർട്ടം അടക്കം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നേപ്പാൾ പൊലീസുമായും ഇന്ത്യൻ എംബസിയുമായും ആശയവിനിമയം നടത്തിവരികയാണെന്ന് മുരളീധരൻ പറഞ്ഞു നേപ്പാളിലെ ഇന്ത്യൻ എംബസി എല്ലാ കാര്യത്തിലും മേൽനോട്ടം വഹിക്കുന്നുണ്ട് രണ്ടു കുടുംബങ്ങളുടെയും ദുഃഖത്തിൽ ഹൃദയംകൊണ്ട് പങ്കുചേരുന്നുവെന്നും വി

ദാരുണമായ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഗാധമായ ദുഃഖം അറിയിച്ചു ദര മൃതദേഹങ്ങൾ എത്രയും പെട്ടന്ന് നാട്ടിലെത്തിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് എം കെ രാഘവൻ എം പി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനോടും നേപ്പാളിലെ ഇന്ത്യൻ എംബസിയോടും ആവശ്യപ്പെട്ടു വിഷയത്തിൽ അടിയന്തിര നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു ലഭിച്ചതായി രാഘവൻ കോഴിക്കോട്ട് പറഞ്ഞു ദേദ പൌരത്വ നിയമ ഭേദഗതി പിൻവലിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവർത്തിച്ചു വ്യക്തമാക്കി ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ ഗവൺമെന്റ് ഭയപ്പെടുന്നില്ലെന്നും ലക്നൌവിൽ ബി ജെ പി സംഘടിപ്പിച്ച റാലിയിൽ അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷം രാജ്യത്തെ വിഭജിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പൌരത്വ നിയമ ഭേദഗതി ആരുടെയും പൌരത്വം എടുത്തുകളയാനല്ലെന്നും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നു വരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൌരത്വം നൽകാനാണെന്നും അമിത്ഷാ ആവർത്തിച്ചു ഇതിനെതിരായ പ്രതിപക്ഷപ്രതിഷേധം ദേശീയ താൽപര്യത്തിന് എതിരാണെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു അയോധ്യയിൽ മൂന്നുമാസത്തിനകം മഹാരാമക്ഷേത്രം നിർമിക്കുമെന്നും അമിത് ഷാ അറിയിച്ചു രദേശ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കുന്ന കാര്യത്തിലും സുപ്രീം കോടതിയെ സമീപിച്ചതിലും കേരള ഗവൺമെന്റ് വിവരങ്ങൾ തന്നിൽനിന്നും മറച്ചുവെച്ചുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപിച്ചു തീരുമാനങ്ങളുമായി മുന്നോട്ടുപോകും മുമ്പ് ഒരു ഘട്ടത്തിലും ഗവൺമെന്റ് തന്റെ അനുവാദം വാങ്ങിയിരുന്നില്ലെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു ഗവൺമെന്റ് വിവരങ്ങൾ അറിയിച്ചിരുന്നുവെങ്കിൽ ചില കാര്യങ്ങൾ തനിക്ക് അവരെ അറിയിക്കാൻ കഴിയുമായിരുന്നുവെന്നും ആരിഫ് മുഹമ്മദ്ഖാൻ പറഞ്ഞു പ്രശ്നം ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി ടോംജോസിനെ താൻ വിളിച്ചുവരുത്തിയെന്ന റിപ്പോർട്ടുകൾ ഗവർണർ നിഷേധിച്ചു ദേശ ചോദ്യങ്ങളിലടക്കം വ്യക്തത വരുത്താതെ സെൻസസ് നടപ്പിലാക്കുന്നതിനോട് കടുത്ത എതിർപ്പാണ് ഉള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നയിക്കുന്ന ലോംഗ് മാർച്ച് കാസർകോട് പുതിയ ബസ് സ്റ്റാന്റ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് സെൻസസിനെകുറിച്ച് കടുത്ത ആശങ്കയാണ് ഉള്ളതെന്നും സെൻസസും ജനസംഖ്യാ രജിസ്റ്ററും തയ്യാറാക്കുന്നതിന് ഒരേ ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിട്ടുള്ളതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി ലോംഗ് മാർച്ച് ഇന്ന് വൈകിട്ട് കാഞ്ഞങ്ങാട്ട് സമാപിക്കും ദേദ പാർലമെന്റ് ബജറ്റ് സമ്മേളത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി വിളിച്ച സംസ്ഥാനത്തെ എം പിമാരുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് നടക്കും രാവിലെ തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് യോഗം

ദേദ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി സൂക്ഷ്മ പരിശോധന ഇന്നു നടക്കും ന്യൂഡൽഹി നിയമസഭാ മണ്ധലത്തിൽ നിന്ന് മത്സരിക്കുന്ന മുഖ്യമന്ത്രിയും ആംആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നതിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വം കാലതാമസമുണ്ടാ യിട്ടില്ലെന്ന് ന്യൂഡൽഹി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് അറിയിച്ചു റിട്ടേണിംഗ് ഓഫീസർ കെജ്രിവാളിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് വൈകിപ്പിച്ചുവെന്ന് സാമൂഹ്യമാധ്യമ ങ്ങളിൽ വരുന്ന വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഓഫീസ് അറിയിച്ചു വരണാധികാരിക്ക് പത്രികകൾ സ്വീകരിക്കുന്നതിന് ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും ഓഫീസ് വ്യക്തമാക്കി രുദ തദ്ദേശ ഭരണസ്ഥാപനങ്ങളിൽ ഈ വർഷം നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് വോട്ടർപട്ടികയിൽ പ്രവാസി ഭാരതീയർക്ക് പേരു ചേർക്കാൻ അവസരം നൽകിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

ദേദ ചൈനയിൽ പടരുന്ന കൊറോണ വൈറസ് ബാധയെ തുടർന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൊച്ചി ഉൾപ്പെടെ രാജ്യത്ത് ഏഴ് വിമാനത്താവളങ്ങളിൽ പരിശോധന കർശനമാക്കി

കൊച്ചിക്കുപുറമെ ഡൽഹി ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് മുംബൈ കൊൽക്കത്ത വിമാനത്താവളങ്ങളിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പരിശോധന നടത്തുന്നത് ദേദ ആധുനിക വ്യാപാര താത്പര്യങ്ങൾക്കനുസൃതമായി പൊതു വിതരണ കേന്ദ്രങ്ങളെ ശാക്തീകരിക്കുമെന്ന് മന്ത്രി പി

സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമ പഞ്ചായത്തുകളിലും മാവേലി സ്റ്റോറുകൾ ആരംഭിച്ച് വിവിധ ഘട്ടങ്ങളിലായി മാവേലി സ്റ്റോറുകളെ സൂപ്പർ മാർക്കറ്റുകളായും സൂപ്പർ മാർക്കറ്റുകളെ ഹൈപ്പർ മാർക്കറ്റുകളായും പരിവർത്തിപ്പിക്കുന്ന പദ്ധതി പ്രാവർത്തികമാക്കിവരികയാണെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം ഒതുക്കുങ്ങൽ ഗ്രാമ പഞ്ചായത്തിലെ സപ്പൈക്കോ മാവേലി സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തിലോത്തമൻ

ബംഗളൂരുവിൽ ഓസ്ട്രേലിയക്കെതിരായ അവസാന ഏകദിനത്തിൽ ഫീൽഡിംങിനിടെ തോളിന് പരിക്കേറ്റ ശിഖർ ധവാന് പകരമാണ് സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്

ദർ ഗുവാഹത്തിയിൽ മൂന്നാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഇന്ന് വൈകിട്ട് സമാപിക്കും

ദരര അന്താരാഷ്ട്ര നിലവാരമുള്ള ബാസ്കറ്റ് ബോൾ താരങ്ങളെ വാർത്തെടുക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പരിശീലന പരിപാടി ഹൂപ്പ്സിന് സംസ്ഥാനത്ത് തുടക്കമായി തൈക്കാട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കന്ററി സ്കൂളിൽ മന്ത്രി ഇ

ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാലയങ്ങളിലെ മുഴുവൻ കുട്ടികളെയും അവരുടെ അഭിരുചിക്കനുസരിച്ച് വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു

ദ്ദേ ഐ എസ് എൽ ഫുട്ബോളിൽ ബംഗളൂരു എഫ് സി ഇന്ന് ഒഡീഷ എഫ് സിയെ നേരിടും

വയനാട് ജില്ലാതല പട്ടയമേള കല്പറ്റയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രദേശ കാലത്തിനനുസരിച്ച് ഗവൺമെന്റ് ഓഫീസുകൾ നവീകരിക്കുന്നത് ജീവനക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് ജനസേവനത്തിന് മാതൃകയാകുമെന്ന് മന്ത്രി ഇ

വയനാട് ജില്ലയിലെ നാലാമത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം മാനന്തവാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേദ വൈക്കം സത്യാഗ്രഹത്തിന്റെ ചരിത്രം പുരാരേഖകളിലൂടെ വിശദമാക്കുന്ന വൈക്കം സത്യാഗ്രഹ സ്മാരക മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു

വിമോചനത്തിന്റെ പാട്ടുകാർ എന്ന ഡ്യോക്യുഫിക്ഷന്റെ ആദ്യ പ്രദർശന ഉദ്ഘാടനം തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ദുദ കഴിഞ്ഞ കുറച്ചു നാളുകളായി കാണുന്നത് സ്ത്രീകളുടെ വലിയ മുന്നേറ്റമാണെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ പറഞ്ഞു കോഴിക്കോട്ട് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേള ഉദ്ഘാടനം ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീകൾ കാണുന്ന ചലച്ചിത്രോത്സവം സ്ത്രീകൾ അഭിനയിച്ച സിനിമകൾ എന്നതിനപ്പുറം സ്ത്രീകൾ നിർമിക്കുന്ന സിനിമകൾക്കാണ് വനിതാ ചലച്ചിത്രോത്സവം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചലച്ചിത്ര താരം അനുമോൾ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാന നിയമസഭ ഐകകണ്ഠ്യേന പ്രമേയം പാസാക്കിയത് ഇന്ത്യാ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത സംഭവമാണെന്ന് സി പി ഐ എം കേന്ദ്രകമ്മറ്റിയംഗം അംഗം എളമരം കരീം എം പി പറഞ്ഞു

ദേദ പൌരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച വ്യാജപ്രചരണങ്ങൾക്കെതിരെ സമൂഹം ജാഗ്രത പാലിക്കണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

ബിജെപി കോഴിക്കോട് സൌത്ത് നിയോജക മണ്ഡലം കമ്മറ്റി സംഘടിപ്പിച്ച ജനജാഗ്രതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റു പാർട്ടിയും പൌരത്വ നിയമഭേദഗതിക്കെതിരെ കള്ളപ്രചരണം നടത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ദേദ കോഴിക്കോട് പന്തീരാങ്കാവിൽ യുഎപിഎ ചുമത്തി റിമാൻഡിൽ കഴിയുന്ന യുവാക്കളുടെ വീടുകൾ സന്ദർശിച്ച് പ്രതിപക്ഷനേതാവ് നടത്തിയ പ്രസ്താവന രാഷ്ട്രീയ മുതലെടുപ്പിനാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

പ്രശ്നത്തെ സാമുദായികവൽക്കരിക്കാനാണ് കോൺഗ്രസും യുഡിഎഫും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് ആരോപിച്ചു

കമ്മീഷൻ അദാലത്തിൽ പരാതിക്കാർ വരാതിരിക്കുന്നത് തെറ്റായ പ്രവണതയാണെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ എം

ജോസഫൈൻ പറഞ്ഞു